ഇന്ന് ലോക ലഹരിവിരുദ്ധദിനം

ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേൽ നടന്ന നന്ദിപ്രമേയ ചർച്ചക്ക് മറുപടി പറയുകയായിരുന്നു പ്രധാന മന്ത്രി ഗാന്ധി നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളല്ലാതെ മറ്റാ രും നടത്തിയ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഒരിക്കലും അംഗീകരിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി മുൻ പ്രധാനമന്ത്രിമാരായ എ

വാജ്പേയിയും നരസിംഹറാ വുവും ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് സംസാ രിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിനേറ്റ കളങ്കമാണെന്നും അതൊരിക്കലും മായി ല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുസ്ലിം സ്ത്രീകളെ ശാക്തീകരിക്കാൻ ലഭിച്ച ഒട്ടേറെ അവസരങ്ങൾ കോൺഗ്രസ് നഷ്ടമാക്കിയെന്നും മോദി കുറ്റ പ്പെടുത്തി മുത്തലാഖ് ബില്ലിനെ പ്രതിപക്ഷം പിന്തുണക്ക ണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നന്ദിപ്രമേയ ചർച്ചക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി ഇന്ന് മറുപടി നൽകും

കൃഷി വ്യവ സായം തൊഴിലില്ലായ്മ തുടങ്ങി ജനങ്ങളെ ആശങ്കപ്പെടു ത്തുന്ന ഒന്നും നരേന്ദ്രമോദി പ്രസംഗത്തിൽ പരാമർശിച്ചി ല്ലെന്ന് ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധിർ ര ഞ്ജൻ ചൌധരി ന്യൂഡൽഹിയിൽ പറഞ്ഞു ബീഹാറിൽ നൂറി ലേറെ കുട്ടികൾ മരിച്ച മസ്തിഷ്ക ജൂരം പോലും പ്രസംഗ ത്തിൽ ഉൾപെടുത്തിയില്ലെന്നും ചൌധരി കുറ്റപ്പെടുത്തി ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കു ന്നത് ഉൾപെടെ എൻ

പ്രേമചന്ദ്രൻ കൊണ്ടുവന്ന നാല് സ്വകാര്യ ബില്ലുകളും ലോക്സഭ ഈ സമ്മേളനത്തിൽ ചർച്ച ക്കെടുക്കില്ല ചർച്ചക്കെടുക്കേണ്ട സ്വകാര്യ ബില്ലുകൾ തീരു മാനിക്കാൻ നടത്തിയ നറുക്കെടുപ്പിൽ ഈ ബില്ലുകൾ ഉൾപെ ടാത്തതാണ് കാരണം

അടുത്ത സമ്മേളന കാലത്തെ നറുക്കെടുപ്പിൽ ഈ ബ്രില്ലുകൾ വീണ്ടും പരിഗണിക്കും ഝാർഖണ്ഡിൽ ആൾക്കൂട്ടം യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് മനുഷ്യത്തിനേറ്റ കളങ്കമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു അക്രമ ത്തിൽ പരിക്കേറ്റ യുവാവിനെ നാല് ദിവസം കസ്റ്റഡിയിൽ വെച്ച് പൊലീസ് നടത്തിയ ക്രൂരത ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം ടിറ്ററിൽ പ്റഞ്ഞു സംഭവത്തിൽ ബിജെപിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ മൌനം പാലിക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി രാജ്യത്ത് നിന്ന് ഈ വർഷം രണ്ട് ലക്ഷം പേർക്ക് ഹജ്ജിന് അവസരം ലഭിക്കുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി അറിയിച്ചു

ഹജ്ജ് കമ്മിറ്റി മുഖേന ഒരു ലക്ഷത്തി നാൽപതിനായിരം പേരും വിവിധ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴി അറുപതിനായിരം പേരുമാണ് പോകുന്നതെന്നും മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു

സംസ്ഥാനത്തെ മെഡിക്കൽ ഡെന്റൽ അനുബന്ധ കോഴ്സുകളിൽ പ്രവേശനത്തിന് റാങ്ക് പട്ടിക പ്രസിദ്ധീരിച്ചു അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയുടെ റാങ്ക്ലിസ്റ്റിൽ ഉൾപെ ടുകയും സംസ്ഥാനത്ത് പ്രവേശനത്തിനായി സ്കോർ സമർപ്പിക്കുകയും ചെയ്തവരുടെ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീ കരിച്ചത് മെഡിക്കലിൽ എറണാകുളം കടവന്ത്ര സ്വദേശി അതുൽ മനോജിനാണ് ഒന്നാം റാങ്ക് കാസർകോഡ് ആർഡി നഗറിൽ ഹൃദ്യ ലക്ഷ്മിക്കാണ് രണ്ടാം റാങ്ക് ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഫലമറിയാം മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശന നടപടികൾ ഉടൻ ആരംഭിക്കും ഇതിനായി പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ എ ഗീത തിരുവനന്തപു രത്ത് അറിയിച്ചു

ഇനിയൊരു ഉത്തരവുണ്ടാകു ന്നതുവരെ രജിസ്ട്രേഷൻ തുടരാമെന്ന് മെഡിക്കൽ കൌൺസ ലിങ് കമ്മിറ്റി ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇടുക്കി തൂക്കുപാലം ഹരിത ഫൈനാൻസ് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പീരുമേട് സബ്ബ് ജയിലിൽ റിമാന്റിലിരുന്ന പ്രതി രാജ്കുമാർ മരിച്ച ്സംഭവത്തിൽ നെടുങ്കണ്ടം എസ് ഐ ഉൾപ്പെടെ നാലു പ്പൊലീസുകാരെ അന്വേഷണവിധേയമായി സസ്പെന്റ് ചെയ്തു

ഐ ഉൾപ്പെടെ അഞ്ചു പേരെ സ്ഥലം മാറ്റി കൊച്ചി റേഞ്ച് ഐ

ബി റെജിമോൻ ഡ്രൈവർമാരായ നിയാസ് സജിമോൻ ആന്റണി എന്നിവരെയാണ് സസ്പന്റ് ചെയ്തത്

തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും രണ്ട് വിചാരണത്തടവുകാർ ജയിൽ ചാടി മോഷണ തട്ടിപ്പു കേസുകളിലെ പ്രതികളായ വർക്കല തച്ചോട് അച്ചു തൻമുക്കിലെ സന്ധ്യ പാങ്ങോട് ശിൽപ മോൾ എന്നിവരാണ് രക്ഷപ്പെട്ടത് ജോലികൾക്കായി സെല്ലിൽ നിന്ന് പുറത്തുവിട്ട ശേഷം ഇന്നലെ വൈകീട്ട് തിരികെ സെല്ലിലേക്ക് പ്രവേശിപ്പി ക്കാൻ തടവുകാരുടെ എണ്ണമെടുത്തപ്പോഴാണ് ഇവർ ജയിൽ ചാടിയതായി കണ്ടെത്തിയത് ഇവർക്കായി തെരച്ചിൽ തുട രുകയാണ് ഇന്ന് ലോക ലഹരിവിരുദ്ധ ദിനം

നീതിക്കു വേണ്ടി ആരോഗൃം ആരോഗൃത്തിനു വേണ്ടി നീതി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരത്ത് മുഖ്യ മന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ലഹരിവർജ്ജന മിഷൻ വിമുക്തി വിവിധ പ്പകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

സെഞ്ചുറി നേടിയ ആരോൺ ഫിഞ്ചാണ് മാൻ ഓഫ് ദി മാച്ച്

കേരളാ പോലീസ് സംസ്ഥാന കായികമേള നാളെ മുതൽ മൂന്നു ദിവസങ്ങളിലായി തേഞ്ഞിപ്പലം കാലിക്കറ്റ് സർവകലാശാലാ സ്റ്റേഡിയത്തിൽ നടക്കും കായികമേളയുടെ ഉദ്ഘാടനം നാളെ വൈകീട്ട് ഒളിമ്പൃൻ ഷൈനി വിൽസൺ നിർവഹിക്കും യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ കല്ലട ബസിന്റെ പെർമിറ്റ് ഒരു വർഷത്തേയ്ക്ക് സസ്പെന്റ് ചെയ്തു തൃശൂരിൽ ചേർന്ന റീജിയണൽ ട്രാൻസ്പോർട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം

മുമ്പാകെ ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റുകരമായ പ്രവർത്തനങ്ങൾക്ക് വാഹനം ഉപയോഗിച്ചുകൂടാ എന്ന മോട്ടോർ വാഹന നിയമത്തിലെ വൃവസ്ഥകൾ ലംഘിച്ചതിനാണ് നടപടി

സമാനമായ കേസുകളിൽ നേരത്തേ സ്വീകരിച്ച ശിക്ഷാ അനടപടികൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിയ്ക്കുന്നതിൽ നിന്ന് ഈ വാഹന ഉടമയെ പിന്തിരിപ്പിച്ചില്ല എന്നും യോഗം വിലയിരുത്തി

യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കൂടുതൽ സർവീസ് നടത്താൻ ഗവൺമെന്റ് കെഎസ്ആർടിസിക്ക് നിർദേശം നൽകി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ തിരക്കിന് സാധ്യതയുള്ളതിനാൽ സർവീസുകൾ വർധിപ്പിക്കണമെന്ന് കർണാടക ആർടിസിയോട് ഗതാഗത വകുപ്പ് ആവശ്യപ്പെട്ടു

സംസ്ഥാനത്ത് പ്രച്ഛന്ന അടിയന്തരാവസ്ഥ നടപ്പാക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള ആരോപിച്ചു വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് കോഴിക്കോട് സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ ഒരു ഓർമ്മപ്പെടുത്തൽ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സാങ്കേതികമായി അടിയന്തരാവസ്ഥ നിലവിലില്ലെങ്കിലും ഭരണകൂട അടിച്ചമർത്തലാണ് വിപ്തവ കക്ഷിയുടെ പേരിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളാ കോൺഗ്രസിലെ സമവായ ശ്രമങ്ങൾ അട്ടിമറി ച്ചത് പി

ജോസഫ് വിഭാഗമാണെന്ന് റോഷി അഗസ്റ്റിൻ എംഎൽഎ കുറ്റപ്പെടുത്തി യുഡിഎഫ് നേതാക്കൾ ഒത്തുതീർപ്പിന് ശ്രമിക്കുമ്പോൾ പരസ്യപ്രസ്താവനയിലൂടെ ജോസഫ് വിഭാഗം അതിന് തട യിടുകയായിരുന്നുവെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു അതേസമയം കേരളാ കോൺഗ്രസിലെ ജോസഫ് ജോസ് കെ മാണി വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് യുഡിഎഫ് നേതാക്കൾ നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടില്ല ചെയർമാൻ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഇരുവിഭാഗവും വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്തതാണ് അനുരഞ്ജന നീക്ക ങ്ങൾക്ക് തിരിച്ചുടിയായത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി

ഫിറോസിൽ നിന്ന് കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മൊഴിയെടുത്തു ഇൻഫർമേഷൻ കേരള മിഷനിലെ ബന്ധുനിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ജയിംസ് മാത്യു എംഎൽഎയുടെതെന്ന പേരിൽ പി കെ ഫിറോസ് പുറത്തുവിട്ട കത്തുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് മൊഴിരേഖപ്പെടുത്തിയത്

സാജന്റെ ഭാര്യയെ കക്ഷി ചേർക്കാൻ നിർദേശിച്ച് ഹർജി പരിഗണിക്കുന്നത് കോടതി മാറ്റി പ്രവാസി വൃവസായി സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആന്തൂർ നഗരസഭ അധ്യക്ഷക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുഡിഎഫ് മഹിളാസംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ കൂട്ടായ്മ നടത്തും രാവിലെ ധർമ്മശാലയിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡണ്ട് ലതിക സുഭാഷ് ഉദ്ഘാടനം ചെയ്യും നാളെ യൂത്ത് കോൺഗ്രസ് ആന്തൂർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്

ബാക്കി വീടുകളുടെ നിർമാണം അന്തിമ ഘട്ടത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന് ബിംബശുദ്ധി ചടങ്ങുകൾ ഇന്നും നാളെയുമായി നടക്കും

ഭക്തർക്ക് നാലമ്പലത്തിനകത്ത് പ്രവേശനം ഉണ്ടാവില്ല ചുറ്റമ്പലത്തിൽ പ്രവേശിച്ച് ദർശനം നടത്താനും വഴിപാടുകൾ നടത്താനും തടസ്സമില്ല

കിഫ്ബി വഴിയാണ് ധനസഹായം ലഭ്യമാക്കുക തൊടുപുഴയിലെ ബിവറേജസ് ഗോഡൌണിൽ നിന്നും ചെറുതോണിയിലേക്ക് ബിയറും വൈനും കയറ്റിപ്പോയ ലോറി കുളമാവിന് സമീപം അയ്യകാട് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു